ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കയിലെത്തി പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയുമായി കൂടിക്കാഴ്ച നടത്തും

ഭരണകൂട പിന്തുണയുള്ള ഭീകർപ്പാദ്യമാണ് മാനവരാശിക്ക് എതിരെയുള്ള ഏറ്റവും വലിയു ഭൂഷ്ണിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

വിജ്ഞാപനം ഇറക്കിട്ട എല്ലാ കർഷകർക്കും പ്രയോജനം

നിലവിൽ വരും

ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം ഓസ്ട്രേലിയയുടെ ആഷ്ലി ബാർട്ടിക്ക്

മാലദ്വീപ് സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം ശ്രീലങ്കയിൽ എത്തിയത് പ്രസിഡന്റ മൈത്രിപാല സിരിസേനയുടെ ക്ഷണമനുസരിച്ചാണ് ശ്രീ മോദിയുടെ ശ്രീലങ്കൻ സന്ദർശനം പ്രസിഡന്റ്സ് സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിന് ഔദ്യോഗിക വരവേൽപ് നൽകും തുടർന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും പ്രതിപക്ഷനേതാവ് മഹീന്ദരാജപക്സെയുമായും തമിഴ് നാഷണൽ അലയൻസ് നേതാവായ സാംബൻത്രുനുമായും അദ്ദേഹം ചർച്ച നടത്തും ശ്രീലങ്കയിൽ ഈസ്റ്റർ ദ്രിന്ത്തിലുണ്ടായ സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെട്ടിപ്പുരോടുള്ള ആദരസൂചകമായും തീവ്രവാദത്തിനെതിരെയ്യുള്ള പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലങ്കൻ സന്ദർശനം അയൽരാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തമായി മുന്നോട്ടു കൊണ്ടുപോകുക എന്ന ലക്ഷ്യവുമുണ്ട് ഉന്നതതല ഉദ്യോഗസ്ഥ സംഘവും പ്രധാനമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്

തീവ്രവാദം ഒരു രാജ്യത്തിന് മാത്രമല്ല ലോകത്തെ എല്ലാ സംസ്കാരങ്ങൾക്കും ഭീഷണിയാണെന്നും അദ്ദേഹം പറഞ്ഞു മാലദ്വീപ് പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി

എല്ലാവരുടെയും ഒപ്പം എല്ലാ വർക്കും വികസനം എന്ന നയം തന്റെ രാജ്യത്തിന് മാത്രമല്ല ലോകരാജ്യ ങ്ങൾക്കും പ്രത്യേകിച്ച് അയൽ രാജ്യങ്ങൾക്ക് മാതൃകയാക്കാവുന്നതാണ് രാജ്യ സുരക്ഷ സാമ്പത്തിക വള്ർച്ച് എന്നിവയുമായി ബന്ധപ്പെട്ട സുപ്രധാന കരാറുകളിൽ ഇരുരാജ്യൂങ്ങളും ഒപ്പുവച്ചു

സന്ദർശനത്തോടനുബന്ധിച്ച് തീരദേശ നവീകരണ സംവിധാനത്തിന്റെയും ദേശീയ സുരക്ഷാ സേനയുടെ പരിശീലന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനവും നടന്നു

പ്രധാനമന്ത്രിയായി രണ്ടാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിനുശേഷമുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ ആദ്യ വിദേശ സന്ദർശനമായിരുന്നു ഇത് വിദേശപൌരന്മാർക്ക് മാലദ്വീപ് നൽകുന്ന ഉന്നത പുരസ്ക്കാരമായ നിഷാൻ ഇസുദ്ദീൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാലദ്വീപ് പ്രസിഡന്റ് ഇബ്രാഹീം മുഹമ്മദ് സ്വാലിഹ് സമ്മാനിച്ചു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിൽ ശ്രീ നരേന്ദ്രമോദി വഹിച്ചു പങ്കാണ് പുരസ്കാരം നൽകാൻ കാരണമായതെന്ന് ശ്രീ

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാലെദ്വീപ് സന്ദർശനത്തിനിടെയാണ് പ്രഖ്യാപനം വിനോദസഞ്ചാരത്തിന്റെ വളർച്ച്ചയ്ക്കുവേണ്ടി ഇരുരാജ്യങ്ങളും തമ്മിൽ ഒരു സ്ഥിരം പ്പാസഞ്ചർ കാർഗോ ഫെറി സർവ്വീസ് തുടങ്ങുന്നത് വേഗത്തിലാ്കേണ്ടതിന്റെ ആവശ്യകതയും ശ്രീ

നേരത്തെ കൈവശമുള്ള ഭൂമിയുടെ വിസ്തൃതി കണക്കിലെടുത്തായിരുന്നു അർഹരായവരെ നിശ്ചയിച്ചിരുന്നത് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദമായ സർവ്വെ നടത്തി അർഹരായവരെയെല്ലാം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര കാർഷിക മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞ മാസം നടന്ന ആദൃ കൃാബിനറ്റ് യോഗത്തിലാണ് പദ്ധതി വിപുലീകരിക്കാൻ നരേന്ദ്രമോദി ഗവൺമെന്റ് തീരുമാനിച്ചത്

ശ്രീലങ്കൻ സന്ദർശനം പൂർത്തിയാക്കി വൈകുന്നേരത്തോടെയാണ് പ്രധാനമന്ത്രി തിരുപ്പതിയിലെത്തുക

നരേന്ദ്ര മോദി നേതൃത്വം നൽകും കേന്ദ്ര ആയുഷ് മന്ത്രാലയമാണ് രാജ്യത്തുടനീളം നടക്കുന്ന അന്താരാഷ്ട്ര യോഗദിനാചരണത്തിന്റെ മുഖ്യ സംഘാടകർ ഇതോടനുബന്ധിച്ച് യോഗയുടെ വികസനത്തിനും പ്രോത്സാഹനത്തിനുമായി പ്രധാനമന്ത്രി യോഗ പുരസ്കാരങ്ങൾ നൽകും

പരമ്പരാഗത മീൻപിടുത്ത യാനങ്ങൾക്ക് വിലക്ക് ബാധകമല്ല ചെറുമത്സ്യങ്ങളെ പിടിക്കുന്നതിനുള്ള നിരോധനം തുടരും നിരോധനകാലത്ത് ബോട്ടുകൾ കടലിൽ ഇറങ്ങുന്നത് തടയുന്നതിനും നിരീക്ഷണസംവിധാനം ഉണ്ടാകുമെന്നും ഫിഷറീസ് വകുപ്പ് അറിയിച്ചു തീരദേശത്തെ പെട്രോൾപമ്പുകളുടെ പ്രവർത്തനം നിർത്തി വയ്ക്കാൻ ജില്ലാകളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്

വിവിധ ജില്ലകളിൽ കൺട്രോൾ നൂമുകളും ആരംഭിച്ചിട്ടുണ്ട് തീരദേശത്തെ യുവാക്കളെ ഉൾപ്പെടൂത്തി കടലിൽ പ്രത്യേക സുരക്ഷാ സേനയും സംസ്ഥാന ഗവൺമെന്റ് രൂപീകരിച്ചിട്ടുണ്ട്

ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നതിനാൽ ഇന്നും നാളെയും മറ്റന്നാളും വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്

കേരളത്തോടൊപ്പം തമിഴ്നാടിന്റെ തെക്കൻ ഭാഗങ്ങൾ ലക്ഷദ്വീപ് മാലദ്വീപ് എന്നിവിടങ്ങളിലും മൺസൂൺ എത്തിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അടുത്ത മൂന്ന് ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു

പദ്ധതി നടപ്പിലാക്കുന്നതിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജരി വാളിന് താല്പര്യമില്ലെന്ന് തനിക്ക് അയച്ച കത്തിൽ നിന്നും മനസ്സിലാക്കുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രി വൃക്തമാക്കി

ഇത് സംബന്ധിച്ച് ഇന്നലെ ഇരുവിഭാഗങ്ങളും നടത്തിയ ചർച്ചയിൽ തീരുമാനമാകാതെ പിരിഞ്ഞു

നടപടി യു

ഇന്നലെ നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ ന്യൂസ്ലാന്റ് അഫ്ഗാനിസ്ഥാനെ ഏഴ് വിക്കറ്റുകൾക്ക് പരാജയപ്പെടുത്തി

ലോകകപ്പിന്റെ ആദൃ മത്സരത്തിൽ കരുത്തരായ ദക്ഷിണാ ഫ്രിക്കയെ പരാജയപ്പെടുത്തിയ ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ ഇറങ്ങുന്നത് തകർപ്പൻ സെഞ്ചറിയുമായി രോഹിത് ശർമ്മ മിന്നുന്ന പ്രകടനമാണ് ദക്ഷിണ്ഫ്രിക്കയ്ക്കെതിരെ കാഴ്ചവെച്ചത് ശിഖർ ധവാനും വിരാട് കോഹ്ലിയും ധോണിയും ഏത് മത്സരവും തങ്ങൾക്ക് അനുകൂലമാക്കാൻ കഴിയുന്ന താരങ്ങളാണ്

ഓസ്ട്രേലിയ ആകട്ടെ ആദ്യ രണ്ട് കളികളിലും വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ഇന്ന് മത്സരത്തിനിറങ്ങുന്നത് അഫ്ഗാനിസ്ഥാനെതിരെയും വെസ്റ്റിന്റീസിനെതിരെയും ഉജ്ജ്വലമായി പന്തെറിഞ്ഞ ബൌളിങ്ങ് നിരയിലാണ് ഓസീസിന്റെ പ്രതീക്ഷകളേറെ യും തീപാറുന്ന പോരാട്ടം കാണാനുള്ള ആവേശത്തിലാണ് ആരാധകർ

ചെക്ക് റിപ്പബ്ലിക് താരം മർക്കേതാ വോൺറോസോവയെയാണ് ആഷ്ലി ഫൈനലിൽ പരാജ യപ്പെടുത്തിയത് അതേ സമയം പുരുഷ സിംഗിൾസിൽ വീണ്ടുമൊരു റാഫേൽ നദാൽ ഡൊമിനിക്ക് തീം അൈനലിന് അരങ്ങൊരുങ്ങി